പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പതിനായിർത്തിലേറെ പേർ രോഗമുക്തി നേടി

രാജ്യത്ത് ലോക്ഏത്ത്ൺ മൂന്നാം ഘട്ടം നാളെ ആരംഭിക്കും

ഒഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എല്ലാ സോണിലും രാത്രികാല സഞ്ചാരത്തിന് നിയന്ത്രണം

കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ വിനിയോഗം പരമാവധി ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു അതിലൂടെ മൂല്യവർധനയുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയും

കാർഷികോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഉല്പന്നൂർപ്പിഷ്ഠിത ബോർഡുകളും സമിതികളും രൂപീകരിക്കേണ്ടതുണ്ടെന്നൂർ പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാൻമന്ത്രി കിസാൻ യോജന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക കിസാൻ ക്രഡിറ്റ് കാർഡ് നൽകുക അന്തർ സംസ്ഥാന വിപണന സൌകര്യങ്ങൾ കാർഷിക വായ്പ തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു

രോഗ പ്രതിരോധത്തിനും കരുതൽ നടപടികൾക്കുമായി കേന്ദ്രം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചേർന്ന് നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് സ്ഥിതി നിരന്തരം നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളേയും വിവിധ സോണുകളായി തിരിച്ചാണ് ലോക്ക് ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുക ഗ്രീൻ സോണിൽ കൂടുതൽ ഇളവുകൾ നൽകും എല്ലാ ബസ് ട്രെയിൻ മെട്രോ റെയിൽ സർവീസുകൾക്കുള്ള വിലക്കും തുടരും

റെഡ് സോണുകളിൽ സൈക്കിൾ റിക്ഷ ഓട്ടോറിക്ഷ ടാക്സി കാബ് അന്തർ ജില്ലാ ബസ് സർവീസ് ബാർബർ ഷോപ്പുകൾ സ്പാ സലൂൺ എന്നിവയ്ക്കുള്ള നിരോധനം തുടരും നാല് ചക്രവാഹനങ്ങളിൽ ഡ്രൈവറെക്കൂടാതെ രണ്ട് പേർക്ക് യാത്ര ചെയ്യാം ഇരുചക്രവാഹനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ അനുമതി ഉള്ളൂ

ഉഡാനു പുറമെ അലയൻസ് എയർ വ്യോമസേന എന്നിവയും സ്വകാര്യ വിമാന കമ്പനികളുമാണ് സർവ്വീസ് നടത്തിയത്

സായുധസേനയുടെ മൂന്നു വിഭാഗങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രതിരോധ സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അറിയിച്ചു രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് സായുധസേന മുന്നിലാണെന്ന് സേനയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദുരന്ത സമയങ്ങളിൽ എപ്പോഴും സമൂഹത്തോടൊപ്പമുള്ള സായുധസേന കോവിഡിനെതിരായ പോരാട്ടത്തിലും ജനങ്ങളോടൊപ്പമാണ് കോവിഡിനെതിരായ ജനങ്ങളുടെ പോരാട്ടം അതുകൊണ്ടുതന്നെ ശക്തമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഇതിന്റെ ഭാഗമായി നാ്പികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എറണാകുളം ജനറൽ ആശുപത്രി സന്ദർശിച്ച് ആരോഗൃ പ്രവർത്തകർക്ക് ആദരവ് അർപ്പിക്കും നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ജനറൽ ആശുപത്രിക്കു മുകളിലൂടെ താഴ്ന്നു പറന്ന് പുഷ്പവൃഷ്ടി നടത്തും നാവികസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കൊച്ചി മറൈൻ ഡ്രൈവിനു മുകളിലൂടെ താഴ്ന്നു പറന്ന് നന്ദി സൂചകമായി ബാനറുകൾ ഉയർത്തി പിടിക്കും

ഞായറാഴ്ച പൂർണ്ണ ഒഴിവു ദിവസമായി കണക്കാക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കടകൾ ഓഫീസുകൾ എന്നിവ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല

രജിസ്റ്റർ ചെയ്തവരുടെ പേര് വിവരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും അതത് രാജ്യത്തെ എമ്പസികൾക്കും അയച്ചുകൊടുക്കും

സഞ്ജയ് എം കൌൾ അഡീഷണൽ സ്റ്റേറ്റ് കോ ഓർഡിനേറ്ററും മനോജ് എബ്രഹാം പോലീസ് പ്രത്യിനീയിയുമാണ്

എറണാകുളത്തു നിന്നും പറ്റ്നയിലേയ്ക്കും ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേയ്ക്കുമാണ് ട്രെയിനുകൾ പുറപ്പെട്ടത് എല്ലാവിധത്തിലുമുള്ള ആരോഗൃ പരിശോധനകൾ പൂർത്തിയാക്കിയതിനുശേഷമാണ് ഇവരെ യാത്ര ആക്കിയത്